പശ്ചിമ ചരക്ക് ഇടനാഴിക്കു കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

മത്സരം

ഇടനാഴി ചരക്കു ഗതാഗതത്തിൽ നിർണായക മാറ്റം കൊണ്ടുവരുമെന്ന് ശ്രീ മോദി പറഞ്ഞു

റേവാരി മഹേന്ദർഗഡ് അജ്മീർ സീക്കർ എന്നീ പ്രവ്യവസായ മേഖലകൾക്ക് ഇടനാഴി ഇന്ധനം എത്തിച്ചു നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു നിർമാണ യൂണിറ്റുകൾക്ക് കൂറ്റഞ്ഞ നിരക്കിൽ ദേശീയ അന്തർദേശീയ വിപണികളിൽ എത്തിച്ചേരാനുള്ള വഴി തുറന്നുകൊടുത്തു

സമ്പദ് വ്യവസ്ഥയുടെ ഉന്നമനത്തിനും ഈ ഇടനാഴി സഹായകമാകുമെന്ന് ശ്രീ മോദി പറഞ്ഞു

ന്യൂ അതേലിയിൽ നിന്ന് ന്യൂ കിഷൻഗണ്ഡ് വരെ സർവീസ് നടത്തുന്ന ഒന്നരകിലോമീറ്റർ നീളമുള്ള ഇലക്ട്രിക് ട്രാക്ഷനോട് കൂടിയ ലോകത്തെ ആദ്യ ഡബിൾ സ്റ്റാക്ക് ലോങ്ങ് ഹോൾ കണ്ടെയ്നർ പ്രധാനമന്ത്രി വീഡിയോ കോൺഫെറൻസിങ്ങിലൂടെ ഫ്ളാഗ് ഓഫ് ചെയ്തു

കോവി ഷീൽഡിനും കോവാക്സിനും ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അടിയന്തര ഉപയോഗത്തിന് അംഗീകാരം നൽകിയിട്ടുണ്ട് സംസ്ഥാനൂങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും തയ്യാറെടുപ്പ് അവ്വലോക്നം ചെയ്യുകയായിരുന്നു ഡോ

എപ്പോൾ വാക്സിൻ എത്തിയാലും കേരളം കോവിഡ് വാക്സിനേഷന് സജ്ജമാണ്

അടുത്തിടെ യു

ഏറ്റവും കൂടുതൽ രോഗബാധിതർ അമേരിക്കയിൽ മൂന്നൂ ലക്ഷത്തി എഴുപതിനായിരംത്തോളം പേർക്കാണ് ജീവൻ നഷ്ടമായത്

കോട്ടയം ജില്ലയിൽ താറാവുകളുടെ കള്ളിങ് ഇന്ന് പൂർത്തിയായി

പെൻസിൽവാനിയയിലെയും അരിസോണയിലേയും ഇലക്ട്രൽ വോട്ടുകൾ ചോദ്യം ചെയ്തുള്ള പ്രമേയം തള്ളിക്കളഞ്ഞ ശേഷമായിരുന്നു പ്രഖ്യാപനം

രണ്ടു പേർ ആശുപത്രിയിലാണ്

ഡൊണാൾഡ് ട്രംപ് അനുകൂലികൾ ക്യാപിറ്റോളിൽ അതിക്രമിച്ചു കയറിയതിനെ തുടർന്ന് വാഷിംഗ്ടൺ ഡിസിയിൽ കർഫ്യൂ ഏർപ്പെടുത്തി പ്രാഥമിക തെരഞ്ഞെടുപ്പിൽ വിജയിയായ ക്ഷണിക്കുന്നതിനായുള്ള ചർച്ചയ്ക്ക് പാർല്ലമെന്റിന്റെ ഇരുസഭകളും ചേർന്നപ്പോഴാണ് പ്രതിഷേധക്കാർ രംഗത്തെത്തിയത്

ചെലവുകുറഞ്ഞതും പരിസ്ഥിതി സൌഹൃദവും ആയ കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുക എന്നതാണ് ടോയ്കത്തോണിന്റെ ലക്ഷ്യാം

രാജ്യദ്രോഹം പൌരത്വ ഭേദഗതി നിയമ പ്രക്ഷോഭങ്ങൾക്കിടയിൽ കലാപമുണ്ടാക്കൽ എന്നിവ ചുമത്തി കഴിഞ്ഞവർഷം ഡിസംബർ മുതൽ അഖിൽ ഗോഗോയ് യെ ജയിലിൽ അടച്ചിരിക്കുകയാണ് ദേശീയ അന്വേഷണ ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസിൽ ആയിരുന്നു വിധി

സ്ഥിരമായി ഉള്ളതും മഹാമാരിക്കാല്ത്ത് മന്ത്രാലയം റദ്ദാക്കിയതുമായ ട്രെയിനുകളിലെ യാത്രക്കാർക്കാണ് ഈ പ്രയോജനം ലഭിക്കുക

ഇന്ത്യക്കായി മുഹമ്മദ് സിറാജും നവദീപ് സൈനിയും ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി

ടോസ് നേടിയ ഓസ്ട്രേലിയ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു

ഗോവ ജി എം സി സ്റ്റേഡിയത്തിലാണ് കളി പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനങ്ങളിലാണ് ബ്ലാസ്റ്റേഴ്സും ഒഡിഷയും ഇന്നലെ നടന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളും ഗോവയും ഓരോ ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞിരുന്നു

കൂടാതെ സംവിധായകന് സ്വർണമയൂരം പുരസ്കാരവും ലഭിക്കും

അര ചെലവിൽ നൂറ്റാണ്ട് പിന്നിടുന്ന മ്യൂസിയത്തിലേക്ക് ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കാൻ ഈ നവീകരണം സഹായിക്കും